സംരംഭങ്ങളിലൂടെ കേന്ദ്രസർക്കാർ നൽകുന്ന അവസരങ്ങളോട് പ്രതിബദ്ധത കാട്ടണമെന്ന് യുവ ഗവേഷകരോട് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

ബിഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി

സ്ഥാനാർഥി ജോ ബൈഡൻ

കോവിഡിനുശേഷമുള്ള ലോകത്ത് സാങ്കേതികവിദ്യയ്ക്ക് വലിയ പങ്കുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വിശദ വിവരങ്ങളുമായി നന്ദകുമാർ

ഡൽഹി ഐ ഐ

ആഗോളവൽക്കരണത്തിനൊപ്പംത്രിന്നെ സ്വയംപര്യാപ്തതയ്ക്കും പ്രാധാന്യമുണ്ടെന്ന് അദ്ദേഹം ് ഓർമ്മീപ്പിച്ചു

ന്റിക്ഷേപ താൽപര്യാർത്ഥം കേന്ദ്ര സർക്കാർ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നുവെന്നും ഇന്ന് ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ കോർപ്പറേറ്റ് നികുതി ഈടാക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബിസിനസ്സ് എളുപ്പമാക്കുന്നതിന് ബി

ഒ മേഖലയിലും പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാദ്യമായാണ് കാർഷിക മേഖലയിലെ നവീകരണത്തിനും പുതിയ സ്റ്റാർട്ടപ്പുകൾക്കും ഇത്രയധികം സാധ്യതകൾ സൃഷ്ടിക്കുന്നത് കൃഷി വൈദ്യം തുടങ്ങിയ മേഖലകളിലെ സ്റ്റാർട്ടപ്പുകൾ അതിവേഗം വളരുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ പേറ്റന്റുകളുടെ എണ്ണം നാല് മടങ്ങ് ഉയർന്നു ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനിലും അഞ്ച് മടങ്ങ് വർധനയുണ്ടായി ദേശീയ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ്ലൈനിന് കീഴിൽ ഒരു ലക്ഷം കോടി രൂപയാണ് സർക്കാർ നിക്ഷേപിക്കുന്നതെന്നും ശ്രീ മോദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

എസ് എൽ

എസ് എൽ

ഏതു കാലാവസ്ഥയിലും ചിത്രമെടുക്കാൻ ശേഷിയുള്ളതാണ് ഇ

ഇതിനുപിന്നിൽ പ്രവർത്തിച്ച എല്ലാവരേയും അഭിനന്ദിക്കുന്നതായും ദീപാവലിക്ക് മുന്നോടിയായുള്ള ആഘോഷമാണ് ഇതെന്നും ഐ എസ് ആർ ഒ മേധാവി ഡോ

കോവിഡ് പൃശ്ചാത്തലത്തിൽ നിർത്തിവച്ചിരുന്ന രാജ്യത്തെ ഉപഗ്രഹൃപ്പിക്ഷേപണ ദൌത്യം ഇപ്പോഴാണ് പുനരാരംഭിക്കുന്നത്

എൽ

ആർ ഒ യും രാജ്യത്തെ ബഹിരാകാശമേഖലയും അഭിനന്ദനം അർഹിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

അമേരിക്കയിൽ നിന്നും ലക്സംബർഗിൽ നിന്നും നാല് വീതം ഉപഗ്രഹങ്ങൾ ദൌത്യത്തിലൂടെ വിക്ഷേപിച്ചു ലിത്വാനിയയിൽ നിന്നുള്ള ഒരെണ്ണമുൾപ്പെടെ ഒൻപത് ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിച്ചതെന്നും ശ്രീ മോദി പറഞ്ഞു

പതിറ്റാണ്ടുകളായി കാത്തിരുന്ന ആവശ്യം അഞ്ചു വർഷം മുമ്പ് നടപ്പാക്കിയത് ചരിത്രപരമായ തീരുമാനമായിരുന്നെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു സൈനികരുടെ ക്ഷേമത്തിനായി നരേന്ദ്ര മോദി സർക്കാർ പൂർണമായും പ്രതിജ്ഞാബദ്ധമാണെന്നും ഒരു റാങ്ക് ഒരു പെൻഷൻ അതിനുള്ള തെളിവാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു വിമുക്ത ഭടൻമാർക്ക് നൽകിയ വാഗ്ദാനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പാക്കിലാക്കിയതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു

നക്സൽ ബാധിത പ്രദേശങ്ങളിലെ നാല് മണ്ഡലങ്ങളിലും പോളിംഗ് സമാധാനപരമായിരുന്നു

വാൽമീകി നഗർ ലോക്സഭാ സീറ്റിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പും ഇതോടൊപ്പം നടന്നു

രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി രാം നാഥ് കോവിന്ദ് സിൻഹയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു കമ്മീഷൻ അംഗങ്ങളായി ഹീരാലാൽ സമരിയ സരോജ് പുൻഹാനി ഉദയ് മഹുർകർ എന്നിവരും ചുമതലയേറ്റു ഇതോടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം എട്ടായി ഉയർന്നു

ആചാര്യ എൻ

കാർഷിക മേഖലയിലെ പരമ്പരാഗത അറിപ്പുകളും അത്യാധുനിക സാങ്കേതികവിദ്യയും തമ്മില്ലുള്ള സമന്വയം വർധിപ്പിക്കണമെന്നും ഉപ്പൽഷ്ട്രപതി ആവശ്യപ്പെട്ടു

ഓൺലൈനിലൂടെയും ഓഫ് ലൈൻ ആയും ഹജ്ജ് മൊബൈൽ ആപ്പ് വഴിയും അപേക്ഷ സമർപ്പിക്കാം കൊറോണ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഹജ്ജ് കാലയളവിൽ ദേശീയ അന്തർദേശീയ മാർഗ്ഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുമെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാരൃ മന്ത്രി മുക്താർ അബ്ബാസ് നഖ്വി അറിയിച്ചു

നിലവിൽ രാജ്ഭവനിൽ നിരീക്ഷണത്തിലാണ് ഗവർണർ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ആശങ്കയില്ലെന്ന് രാജ്ഭവൻ വൃത്തങ്ങൾ അറിയിച്ചു

വർഷങ്ങളായി റിപ്പബ്ലിക്കൻ പാർട്ടി ആധ്യിപത്യം പുലർത്തുന്ന ജോർജിയയിലും ഡെമോക്രാറ്റുകൾക്ക് ല്ലീസ് നേടാൻ കഴിഞ്ഞു

ഇവയ്ക്ക് പുറമെ നെവാഡ അരിസോണ നോർത്ത് ക്രോലിന എന്നിവിടങ്ങളിലും വോട്ടെടുപ്പ് തുടരുന്നതിനാൽ എല്ലാവരോടും ക്ഷമയോടെ കാത്തിരിക്കാൻ ബൈഡ്ന്റ് ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വിജയം സുനിശ്ചിതമാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു

പ്രതിദിനം പതിനായിരത്തിലധികം പരിശോധനയാണ് ഇ സഞ്ജീവനിയിലൂടെ നടത്തുന്നത്

യാത്രക്കാരുടേയും ജീവനക്കാരുടേയും സുരക്ഷ മതിയായ അടിസ്ഥാന സൌകര്യം എന്നീ മേഖലകൾ ശ്രദ്ധിക്കണമെന്നും പിയൂഷ് ഗോയൽ ട്വീറ്റ് ചെയ്തു